ഇന്ത്യയുടെ സായ് പ്രണീത് ഇന്ന് ജപ്പാൻ താരം കന്ത സുനയാമയെ നേരിടും

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അടങ്ങിയ അഞ്ചംഗ ഭരണഘടന ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്

കൂടുതൽ വിവരങ്ങളുമായി വി ഗോപകുമാർ

പെൺകുട്ടിയുടെയും അവരുടെ അഭിഭാഷകന്റെയും ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് ശ്രീ

നഷ്ടപരിഹാരത്തിന് പുറമെ ഉന്നാവോ ബലാൽസംഗവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ഉത്തർപ്രദേശ് കോടതിയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റാനും സുപ്രീംകോടതി ഉത്തരവിട്ടിട്ടുണ്ട്

ഇന്നും വാദം തുടരുന്ന കേസിൽ റായ്ബറേലിയിലെ ജയിലിൽ കഴിയുന്ന പെൺകുട്ടിയുടെ ബന്ധുവിന്റെ അപേക്ഷയും കോടതി പരിഗണിക്കും റായ്ബറേലിയിലെ ജയിലിൽ നിന്നും ന്യൂഡൽഹിയിലെ ജയിലിലേക്ക് തന്നെ മാറ്റണമെന്നാണ് ബന്ധുവിന്റെ അപേക്ഷ അതേസമയം പെൺകുട്ടിക്ക് കാറപകടം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതനായ ബിജെപി എം

എ കുൽദീപ് സിങ് സെൻഹാർ ഉൾപ്പെടെ പത്ത് പേർക്കെതിരെ സിബിഐ കേസെടുത്തിട്ടുണ്ട്

നേരത്തെ രണ്ട് കോൺഗ്രസ് വിമത നേതാക്കൾ രമേശ് എൽ ജാർക്കി ഹോളി മഹേഷ് കുമ്മത്തലി സ്വതന്ത്രനേതാവ് ആർ ശങ്കർ എന്നിവർ അപ്പെക്സ് കോടതിയെ സമീപിച്ചിരുന്നു തിങ്കളാഴ്ച രാജിവെച്ച സ്പീക്കർ കെ ആർ രമേശ്കുമാർ അയോഗ്യരാക്കിയ ജെ ഡി എസ് എം എൽ എ മാരായ എ എച്ച് വിശ്വനാഥ് കെ ഗോപാലൈ നാരായണ ഗൌഡ എന്നിവരും ഹർജി സമർപ്പിച്ചിരുന്നു

ലഷ്കർ ഇ തോയ്ബ തലവൻ ഹാഷ്ട്രിസ് സൈയ്ദിനെതിരെ ദേശീയ അന്വേഷണ ഏജൻസി ഫയൽ ചെയ്ത കേസിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റീടുന്റു നടപടി എൻ ഐ എ കേസിനെ തുടർന്ന് വതാലി ഇപ്പോൾ തിക്കാർ ജ്യിലിൽ കഴിയുകയാണ്

വിദ്യാർത്ഥികളുടെയോ രക്ഷകർത്താക്കളുടെയോ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് മുഴുവൻ ഫീസ് തുകയും തിരികെ നിക്ഷേപിക്കുമെന്ന് മഹാരാഷ്ട്ര വിദ്യാഭ്യാസ മന്ത്രി ആഷിഷ് ഷെയ്ലർ അറിയിച്ചു വരൾച്ച ബാധിത ജില്ലകളിൽ കഴിയുന്ന കുട്ടികൾ ഒരു ഫീസും അടയ്ക്കേണ്ടതില്ലെന്നും നേരത്തെ വരൾച്ച ബാധിച്ച ജില്ലകളിലെ കുട്ടികൾക്ക് അടച്ച ഫീസ് തിരികെ നൽകുമെന്നും ഗവൺമെന്റ് തയ്യാറാക്കിയ പ്രമേയത്തിൽ പറയുന്നു

പിജി പ്രവേശന പരീക്ഷയ്ക്കുള്ള മാനദണ്ഡമായി അവസാന വർഷ എം ബി ബി എസ് പരീക്ഷ ഉൾപ്പെടുത്തിയുള്ള മെഡിക്കൽ കൌൺസിൽ ബില്ലിലെ വ്യവസ്ഥയ്ക്കെതിരെയാണ് വിദ്യാർത്ഥി പ്രതിഷേധം ബില്ലിനെതിരെയുള്ള തുടർനടപടികൾ ഞായറാഴ്ച ആലുവയിൽ ചേരുന്ന എമർജൻസി ആക്ഷൻ കൌൺസിൽ യോഗത്തിനു ശേഷം തീരുമാനിക്കുമെന്ന് ഐ

രാജ്യസഭ നേരത്തെ തന്നെ ഇവ പാസാക്കിയിരുന്നു

കുട്ടികളുടെ നഗ്നത ചിത്രീകരിച്ച് പ്രദർശിപ്പിക്കുന്ന്വർക്ക് അഞ്ച് വർഷം തടവും നിയമം വ്യവസ്ഥ ചെയ്യുന്നു രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പു വരുത്തുകയാണ് ഗവൺമെന്റിന്റെ മുൻഗണന എന്ന് ചർച്ചുകൾക്ക് മറുപടി പറയവേ കേന്ദ്ര വനിതാ ശിശു ക്ഷേമ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു

കൂടാതെ തർക്കപരിഹാരത്തിനായി ആർബിട്രേഷൻ കൌൺസിൽ ഓഫ് ഇന്ത്യഎന്ന സ്ഥതന്ത്ര സ്ഥാപനം രൂപീകരിക്കുന്നതിനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് നല്ലഭരണത്തിന് തർക്ക പരിഹാരങ്ങൾക്ക് തുല്യപ്രാധാന്യമാണുളളതെന്ന് നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് മറുപടി പറഞ്ഞു

കമ്പനികളുടെ അടച്ചുപൂട്ടലല്ല നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമായി ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി

കോണാക്രയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലിറങ്ങിയ രാഷ്ട്രപതിയ്ക്ക് ഗുനിയൻ പ്രസിഡന്റ് ആൽഫാ കോണ്ടയും ഗുനിയയിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും ചേർന്ന് ഊഷ്മള സ്വീകരണം നൽകി പടിഞ്ഞാറൻ ആഫ്രിക്കയുടെ തെക്കുപടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന വികസ്വര രാജ്യമാണ് ഗുനിയ

അദീബും കൂട്ടരും ഒരു ചെറുബോട്ടിൽ സഞ്ചരിക്കുകയാണെന്ന് തുറ്മുഖ അധികൃതരുടെ അറിയിപ്പിനെ തുടർന്ന് ബോട്ട് തൂത്ത്യുക്കുടിയിൽ അടുപ്പിക്കാൻ കോസ്റ്റ്ഗാർഡ് നിർദ്ദേശിക്കുകയായിരുന്നു

ശ്രീലങ്കയുടെ വികസനത്തിന് ഇന്ത്യ നൽകിയ എല്ലാ പിൻതുണയ്ക്കും പ്രധാനമന്ത്രി വിക്രം സിൻഹെ നന്ദി അറിയിച്ചു ഈസ്റ്റർ ദിനത്തിലുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്ക സന്ദർശിച്ചത് രാജ്യത്തിന്റെ ആത്മവിശ്വാസമുയർത്താൻ ഏറെ സഹായകരമായെന്നും ശ്രീ സിൻഹെ കൂട്ടിച്ചേർത്തു

ടൂർണമെന്റിന്റെ സിംഗിൾസ് മത്സരങ്ങളിൽ അവശേഷിക്കുന്ന ഏക ഇന്ത്യക്കാരനാണ് സായ് പ്രണീത്

മൈ ഗവൺമെന്റ് പ്ലാറ്റ്ഫോമില്ലാണ് മത്സരം